കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് നാടിന് സമർപ്പിക്കും

ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ ഡിപ്പാർച്ചർ ഹാളിനു മുന്നിൽ മന്ത്രി ഇ പി ജയരാജന്റെ നേതൃ ത്വത്തിൽ മന്ത്രിമാരും വിശിഷ്ടാതിഥികളും ചേർന്ന് സ്വീക രിക്കും

ഐ പി ലോഞ്ചിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കട ന്നപ്പള്ളിയും എ ടി എം ഉദ്ഘാടനം മന്ത്രി എ കെ ശശീ ന്ദ്രനും നടത്തും ഫോറിൻ എക്സ്ചേഞ്ച് കൌണ്ടറിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജയും മലബാർ കൈത്ത റി ഇൻസ്റ്റലേഷൻ അനാച്ഛാദനം മന്ത്രി ഇ പി ജയരാജനുമാണ് നടത്തുന്നത് ഫുഡ് ആന്റ് ബീവറേജസ് സർവീസസ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ഇ ഓട്ടോറിക്ഷാ സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവ ഹിക്കും വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ തത്സ മയ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിയും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഫേസ്ബു ക്ക് പേജിലും പി ആർ ഡി ലൈവ് മൊബൈൽ ആപിലും രാവിലെ എട്ട് മുതൽ കാണാം

ഇതിനാവശ്യമായ എല്ലാ സഹായവും കേന്ദ്രഗവൺമെന്റ് നല്കും

മൂല്യവർധിത ഉത്പന്നങ്ങളാണ് ഭാവിയുടെ പ്രതീക്ഷയെന്ന തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു

ജില്ലാപൊലീസ് മേധാവിയുടെയും ശബരിമല അഡീ ഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെയും നിലയ്ക്കൽ എക്സിക്യു ട്ടീവ് മിജസ്ട്രേറ്റിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തി ലാണ് ഇലവുങ്കൽ മുതൽ ശബരിമല സന്നിധാനം വരെ പ്രദേ ശങ്ങളിൽ നിരോധനാജ്ഞ നീട്ടിയത്

സോപാനത്ത് ദർശനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചു പമ്പ ഗണപതി കോവിലിലും പരിസരത്തുമായി ഏർപ്പെടു ത്തിയിരുന്ന പ്രത്യേക സുരക്ഷയും പിൻവലിച്ചിട്ടുണ്ട് തീർത്ഥാടനകാലം ആരംഭിച്ച് ഇതുവരെ പത്ത് ലക്ഷത്തില ധികം തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയതായി പൊലീ സിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു

ലലലലലലലലലലലലല കേരളത്തിന്റെ തനത് പാനീയം എന്ന നിലയിൽ നീര രാജ്യാന്തര നിലവാരത്തിൽ തയ്യാറാക്കി പുതിയ ബ്രാൻഡിൽ വിപണിയിലെത്തിക്കു മെന്ന് മന്തി വി എസ് സുനിൽകുമാർ അറിയിച്ചു കോഴിക്കോട് എലത്തൂരിൽ നീര പൈലറ്റ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി നീരയുടെ ഗുണനിലവാരത്തിനും രുചിക്കും നിറത്തിനും കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന ചേരു വകൾക്കും പൊതു മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതായി അദ്ദേഹം വെളിപ്പെടുത്തി എലത്തൂരിൽ ആരംഭിക്കുന്ന കേരാധിഷ്ഠിത ഉത്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും നീര ടെക്നീഷ്യൻ പരിപാ ടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

വിധികർത്താവിനെതിരെയുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ മാറ്റിവെച്ച കൂടിയാട്ടം ഇന്ന് ആലപ്പുഴ ടൌൺഹാ ളിൽ നടത്തും ലലലലലലലലലലലലല പുനരുജ്ജീവിപ്പിക്കുന്ന ജ്ലസ്രോതസുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പൊതുസമൂഹം തയ്യാറാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊല്ലത്ത് ആവശ്യപ്പെട്ടു ഹരിതകേരളം മിഷന്റെ രണ്ടാം വാർഷികത്തോടുനുബന്ധിച്ച് പാണ്ടിവയൽ തോടിന്റെ പുനരുജ്ജീവനത്തിനായി സംഘടിപ്പിച്ച ഏകദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജലാശയങ്ങളിലെ വെള്ളം ചെറുകിട ജലസേചനത്തിനു വിനിയോഗിച്ച് കുടുംബങ്ങളുടെ വരുമാന വർധനയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കണെമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പി ച്ചേക്കുമെന്ന പ്രതീക്ഷ സംഘടനയ്ക്കുണ്ടെന്ന് പാർട്ടി വക്താവ് വിനോദ് ബെൻസാൽ പറഞ്ഞു

ഭുവനേശ്വരിൽ പൂൾ സി യിലെ അവസാന മത്സര ത്തിൽ കാനഡയെ ഒന്നിനെതിരെ അഞ്ച് ഗോളിന് തോൽപ്പി ച്ചാണ് ഇന്ത്യ കാർട്ടറിലെത്തിയത്

ചേതേശ്വർ പൂജാര അജിങ്കൃ രഹാനെ എന്നിവരാണ് ക്രീസിൽ

മത്സരവിഭാ ഗത്തിൽ ഇ മാ യൌ അടക്കം ചിത്രങ്ങളുടെ പ്രദർശനം ഇന്നാ ണ്

ജനവിശ്ചാസം ഒന്നുകൊണ്ടുമാത്രമാണ് നോട്ടുനിരോധന കാലത്ത് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അതിജീവനം സാധ്യമായതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

അർഹ തപ്പെട്ടവരുടെ കൈകളിൽ സഹായമെത്തുമെന്ന ഉറപ്പോടെ യാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം നൽകിയത് ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ അറിയിച്ചു കെയർഹോം നിർമ്മാണപദ്ധതിയുടെ മലപ്പുറം ജില്ലാ ഉദ്ഘാ ടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

നവകേരള നിർമ്മാണത്തിൽ ആരെയും ഒഴിച്ചു നിർത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി

ലക്കിടി പേ രൂർ ഗ്രാമപഞ്ചായത്തിലെ ഡോ എ പി ജെ അബ്ദുൾകലാം സ്മാരക കെട്ടിടവും പി കെ ഏന്തീൻകുട്ടി സ്മാരക ഹാളും അദ്ദേഹം തുറന്നുകൊടുത്തു

കണ്ണൂ രിലെ കൂത്തുപറമ്പിൽ എക്സൈസ് സമുച്ചയത്തിന് തറക്ക ല്ലിടുകയായിരുന്നു മന്ത്രി കേസുകൾ കാര്യക്ഷമമായി അന്വേ ഷി ക്കാൻ എക് സൈസ് വകുപ്പിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിക്കുമെന്നും മന്ത്രി പറ ഞ്ഞു എല്ലാ ജില്ലകളിലും എക്സൈസ് ടവർ നിർമ്മാണം തുടങ്ങിയതായും മന്ത്രി വെളിപ്പെടുത്തി

മാലിന്യനിക്ഷേ പത്തെ തുടർന്ന് നശിച്ച നദികളെ പുനർജനിപ്പിക്കാൻ സംസ്ഥാനത്ത് ശ്രമങ്ങൾ തുടരുകയാണ് കക്ഷിരാഷ്ട്രീയ ത്തിനതീതമായി ഈ പ്രവർത്തനത്തിന് പിന്തുണ വേണ മെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു കണ്ണൂർ കോർപറേഷൻ ആവി ഷ്ക്കരിച്ച കക്കാട് പുഴ ശുചീകരണവും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കേരഗ്രാമം പദ്ധതി മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നാളി കേര സമഗ്രഗ കൃഷിയുടെ വിക സനം ലക്ഷ്യ മിട്ട് എല്ലാ പഞ്ചാ യ ത്തു ക ളിലും കേരഗ്രാമപദ്ധതി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നു വർഷമായിരിക്കും പദ്ധതിയുടെ കാലാവധി

നവമാധ്യമങ്ങളി ലൂടെയും ഫോണിലൂടെയും ലഭിക്കുന്ന ഭീഷണികളുടെ പേരിൽ വനിതാമതിൽ തീരുമാനത്തിൽ നിന്ന് പിൻമാറി ല്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി

സ്റ്റേഷൻ തമിഴ്നാട്ടിലേക്കു കൊണ്ടുപോകുന്നതി നെതിരെ സംഘടന ഇന്ന് ആലപ്പുഴയിൽ നടത്താനിരുന്ന ധർണ മാറ്റിവെച്ചതായി ജനറൽസെക്രട്ടറി കെ എസ് കെ ആലപ്പാട്ട് അറിയിച്ചു